തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെര ഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നാളെ രാവിലെ എട്ടിന് തുടങ്ങും വയനാട്ടിൽ കോൺഗ്രസ് അധ്യക്ഷന്റെ സ്ഥാനാർത്ഥിത്വം ഇടത് വലത് മുന്നണികളുടെ ബാന്ധവം ഒരിക്കൽക്കൂടി വ്യക്തമാക്കി യിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ വർഗ്ഗീയ കലാപങ്ങളുടെയും വംശീയ ആക്രമണത്തിന്റെയും വക്താക്കളെ കേരളത്തിലെത്തിക്കുന്നത് അപകടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി നൽകി ക്രൈസ്തവ വിശ്വാസികൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ഉയിർപ്പ് തിരുനാൾ ആഘോഷിക്കുന്നു

അവസാന മണിക്കൂറുകളിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനും റോഡ് ഷോകൾ നടത്താനും സ്ഥാനാർത്ഥികൾ തിരക്കിട്ട നീക്കത്തിലാണ്

കോഴി ക്കോട് വടകര കണ്ണൂർ എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥി കളും ദേശീയ നേതാക്കളും അവസാനവട്ട പര്യടനം തുട രുന്നു രാജ്യരക്ഷാ മന്ത്രി നിർമ്മലാ സ്വീതാരാമൻ ഉച്ചക ഴിഞ്ഞ് വടകരയിൽ പ്രചാരണത്തിനിറങ്ങും രാവിലെ സുൽത്താൻ ബത്തേരിയിലെ പ്രചാരണ യോഗത്തിലും അവർ പങ്കെടുത്തു

ഐ

സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രചാരണ സമാപനത്തിന് തിളക്കം നൽകാൻ മണ്ഡലങ്ങളിലുണ്ട് പുൽവാമ ഭീകരാ ക്രമണത്തിൽ മരിച്ച സി

എഫ് ജവാൻ വി വി വസ ന്തകുമാറിന്റെ വീട്ടിൽ പ്രിയങ്ക സന്ദർശനം നടത്തും തെരഞ്ഞെടുപ്പിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി യതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ തിരുവനന്തപുരത്ത് അറിയിച്ചു

മലപ്പുറത്താണ് ഏറ്റവും അധികം വോട്ടർമാരും പോളിംഗ് ബൂത്തുകളും

ആർ

എഫ് സുരക്ഷ ഒരുക്കുമെന്ന് ടിക്കാറാം മീണ വെളിപ്പെടുത്തി

തെരഞ്ഞെടുപ്പിന് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നാളെ രാവിലെ എട്ടിന് ആരംഭിക്കും

ബൂത്തിലെത്തുന്ന കാഴ്ചശക്തി കുറവുള്ളവർക്കും മുതിർന്ന പൌരന്മാർക്കും മാഗ്നിഫയിങ് ഗ്ലാസ് നൽകും ഓരോ പോളിംഗ് സ്റ്റേഷനുകളിലും രണ്ട് വീൽചെയറുകൾ വീതമു ണ്ടാകും

ലോക്സഭ തെരഞ്ഞടുപ്പിനുളള ഒരുക്കങ്ങൾ കോഴിക്കോട് ജില്ലയിൽ പൂർത്തിയായതായി ജില്ലാ കലക്ടർ എസ്

സഹായത്തിനായി ഒരു വളണ്ടിയറേയും എല്ലാ ബൂത്തിലും ഒരുക്കുമെന്നും കലക്ടർ അറിയിച്ചു

മാവോവാദി അനുകൂല പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ട ഇരിട്ടി മേഖലയിൽ കേന്ദ്രസേന റൂട്ട്മാർച്ച് നടത്തി പ്രദേശത്ത് കൂടുതൽ സേനാംഗങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്

വയനാട്ടിൽ കോൺഗ്രസ് അധ്യക്ഷന്റെ സ്ഥാനാർത്ഥിത്വം ഇടത് വലത് മുന്നണികളുടെ ബാന്ധവം ഒന്നുകൂടി വ്യക്ത

സുൽത്താൻ ബത്തേരിയിൽ എൻ

അമേഠിയിലെ തോൽവി ഭയന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ വയനാട്ടിൽ എത്തിയതെന്നും ഇടതുപക്ഷം അവ സരവാദ രാഷ്ട്രീയമാണ് കാണിക്കുന്നതെന്നും നിർമ്മല സീതാരാമൻ കുറ്റപ്പെടുത്തി ധർമ്മത്തെ എതിർക്കുന്നവരാണ് വയനാട്ടിലെ എൻ

എ സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ ദിവസം ആക്രമിച്ചതെന്നും നിർമ്മലാ സീതാരാമൻ കുറ്റപ്പെടുത്തി വർഗ്ഗീയ കലാപങ്ങളുടെയും വംശീയ ആക്രമണങ്ങളു ടെയും വക്താക്കളെ കേരളത്തിലെത്തിക്കുന്നത് അപകടക രമായ പ്രവണതയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു ഇത്തരക്കാരുടെ റോഡ് ഷോ നാടിനെ ആപൽക്കരമായ നിലയിലേക്ക് കൊണ്ടു പോകുമെന്ന് അദ്ദേഹം കണ്ണൂരിൽ പ്രസ് ക്ലബ്ബിന്റെ മുഖാമുഖത്തിൽ പറ ഞ്ഞു

കേരളത്തിൽ എൽ ഡി എഫും യു ഡി

പല മണ്ഡലങ്ങളിലും യു

എഫും ബി ജെ

ജനാധിപത്യവിരുദ്ധ ശക്തികൾക്ക് പരവതാനി വിരിക്കാൻ സംസ്ഥാനത്ത് സൌകരൃം കൊടുക്കുന്നത് നാടിന്റെ പാരമ്പര്യത്തിനും സംസ്കാരത്തിനും ആപത്താ കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിക്കുന്ന തര ത്തിൽ വിവാദ പരാമർശങ്ങൾ നടത്തിയ ബി

പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻ പിള്ള തന്നോട് രണ്ടുതവണ മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറഞ്ഞു ഇതിനുശേഷവും അദ്ദേഹം തെറ്റ് ആവർത്തിക്കുകയാണെന്നും ഇത് ഇരട്ടത്താ പ്പാണെന്നും ടിക്കാറാം മീണ് സ്വകാര്യ ചാനലിനോട് പറ ഞ്ഞു തനിക്കെതിരെ വിമർശനം ഉന്നയച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അവഹേളിക്കാൻ ശ്രമിക്കുകയാ ണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി

ഒളികൃാമറ വിവാദത്തിൽ കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കുന്നതിനുമുമ്പ് കേസെടുക്കാൻ പൊലീസ് നടത്തുന്ന ശ്രമം ആസൂത്രിതമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

രാഷ്ട്രീയപ്രേരിത മായ നടപടികൾ യു

എഫിനെ തോൽപ്പിക്കാൻ വേണ്ടി യാണെന്ന് മജീദ് കോഴിക്കോട്ട് പറഞ്ഞു ഒളിക്യാമറാ വിവാദത്തിന്റെ സാഹ ച ര്യ ത്തിൽ കോഴിക്കോട്ടെ യു

എഫ് സ്ഥാാർഥി പിൻമാറണമെന്ന് എൽ

വിവാദത്തിന്റെ പേരിൽ സി പി ഐ എമ്മിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ വസ്തുതാപരമല്ലെന്ന് തെളിഞ്ഞതായും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു യേശുദേവന്റെ ഉയിർപ്പ് തിരുനാൾ ക്രൈസ്തവ സമൂഹം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിക്കുകയാണ് പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം മൂന്നാം നാൾ യേശുക്രിസ്തു ഉയിർത്തെഴുന്നേറ്റുവെന്ന വിശ്വാസ ത്തിൽ ദേവാലയങ്ങളിൽ പാതിരാ കുർബ്ബാനകളും പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും നടന്നു

സമ്പത്തി ന്റെയും വിജയങ്ങളുടെയും പിന്നാലെ പോവാതെ വിശ്വാ സികൾ ദൈവത്തിനുവേണ്ടി ജീവിക്കാൻ തയ്യാറാകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു

കൊളംബോയിലും ബത്തിക്കലോവയിലും രാവി ലെ എട്ടേമുക്കാലോടെയുണ്ടായ സ്ഫോടനങ്ങളിൽ നാനൂ റിലേറെപേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്

ശ്രീലങ്കയിലെ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ കൊളംബോയിൽ അറിയിച്ചു അവിടെ കഴിയുന്ന ഇന്ത്യക്കാർക്ക് ആവശ്യമായ സഹായ ങ്ങൾക്ക് ഹൈക്കമ്മീഷനെ സമീപിക്കാമെന്ന് ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഖത്തറിൽ തുട ക്കമാകും

എല്ലിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ ഹൈദരബാദിൽ വൈകിട്ട് നാലിന് സൺറൈസേഴ്സ് ഹൈദരബാദ് കൊൽക്കത്ത നൈറ്റ്റൈഡേഴ്സിനെ നേരിടും ചെന്നൈയിൽ രാത്രി എട്ടിന് ചെന്നൈ സൂപ്പർ കിംഗ്സ് ബാംഗ്ളൂർ റോയൽ ചാലഞ്ചേഴ്സുമായും ഏറ്റുമുട്ടും

ഗവൺമെന്റ ഓഫീസുകൾക്ക് നാളത്തെ അവധി ബാധകമല്ല കോഴിക്കോട് ജില്ലയിൽ അഞ്ചുപേർക്ക് ഇന്നലെ സൂര്യാ തപമേറ്റു

സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് ആതി ഥേയരായ പഞ്ചാബ് ലുധിയാനയിൽ സർവ്വീസസിനെ നേരി ടും സെമിഫൈനലിൽ ഗോവയെ തോൽപ്പിച്ചാണ് പഞ്ചാബ് ഫൈനലിലെത്തിയത്

സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ശക്തമായ വേനൽമഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി ഉരുൾപൊട്ടൽ സാധ്യത മുൻനിർത്തി വൈകിട്ട് ഏഴുമുതൽ രാവിലെ ഏഴുവരെ മല യോര മേഖലയിലേക്ക് യാത്ര പരമാവധി ഒഴിവാക്കണം